പഞ്ചാബ് കർണാടക ബീഹാർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആശയവിനിമയം നടത്തി കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി

കേരളത്തിൽ കോവിഡ് ചികിത്സാ മാർഗരേഖ പുതുക്കി എല്ലാ പനി ക്തിനിക്കുകളും ഇനി മുതൽ കോവിഡ് ക്ലിനിക്കുകൾ

ഹിമന്ദ ബിശ്വ ശർമ അസം മുഖ്യമന്ത്രിയാകും സത്യപ്രതിജ്ഞ നാളെ

കൃഷ്ണ്ഞ് കുറച്ച് ദിവസങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിലെ മൂഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി വൂരികയ്ാണ് ആരോഗ്യ സൌകര്യങ്ങളും പ്രതിരോധ കുത്തിവയ്ക്കുകളുടെ സ്ഥിതിഗതികളും അദ്ദേഹം ആരാഞ്ഞു തമിഴ്ന്റെട് ജാർഖണ്ഡ് ഒഡീഷ തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് സിക്കിം എന്നീ മുഖ്യമന്ത്രിമാരുമായാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത്

വീട്ടിലോ സർക്കാർ ഐസോലേഷൻ സെൻററുകളിലോ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ഇതിൻറെ പ്രയോജനം ലഭ്യമാകുമെന്ന് ആയുഷ് മന്ത്രാലയം വൃക്തമാക്കി

കോവിഡിന്റെ രണ്ടാം തരംഗത്തിനിടെ കോവിഡ് രോഗബാധിതരിൽ മരുന്ന് ഫലപ്രദമാണ്ണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്

രോഗ്മുക്തി വേഗത്തിൽ ആക്കുന്നതിനും ആശ്രയത്വം ഓക്സിജൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് ഈ മരുന്ന് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയുമായി ചേർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ് എന്ന് ഡിആർഡിഒ ലാബാണ് മരുന്ന് വികസിപ്പിച്ചത്

കോവിഡ് വ്യാപനം തടയുന്നത് ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാം എന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു

വൈകിട്ട് അദ്ദേഹം ഗവർണറെ കണ്ടു

തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ഒരാഴ്ചയിലേറെയായി തുടരുന്ന അനിശ്ചിതത്വത്തിന് ശേഷമാണ് തീരുമാനം

എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ നാലായിരത്തിൽ അധികം പേർക്കും മലപ്പുറം കോഴിക്ക്ട്രോട് തൃശൂർ ജില്ലകളിൽ മൂവായിരത്തിൽ അധികം പേർക്കും ഒരോഗ് ബാധ സ്ഥിരീകരിച്ചു

സർക്കാർ ആശുപത്രികൾ കോവിഡ് ചികിത്സയിൽ കേന്ദ്രീകരിക്കുമെന്നും പുതിയ മാർഗ നിർദേശത്തിൽ പറയുന്നു

താലുക്ക് ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകൾ ഒരുക്കും കോവിഡ് ചികിത്സയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും ഉറപ്പാക്കും

വിശദാംശങ്ങളുമായി സുരേഷ്

കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നേരിയ തോതിൽ കുറഞ്ഞുവെന്ന് പറഞ്ഞ കെജ്രിവാൾ ജാഗ്രത ഉറപ്പാക്കുന്നത് വരെ ലോക്ഡൌൺ തുടരുമെന്നും പറഞ്ഞു

വാക്സിനുകളുടെ കുറവുണ്ടെന്നും എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്രം സഹായിക്കുമെന്ന് പ്രത്യാശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഹോട്ടലുകളിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ പാഴ്സൽ ലഭ്യമാട്ക്കാൻ അനുമതിയുണ്ട്

ആഗോളതലത്തിൽ ലഭിച്ച സഹായം ഈ പ്രതിസന്ധിഘട്ടത്തിൽ കൃത്യമായും ഫലപ്രദമായും സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണപ്രദേശങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് കേന്ദ്രം ഉറപ്പുവരുത്തുന്നുണ്ട്

രാജ്യത്തുടനീളം ഏതുസമയത്തും ആവശ്യമായ സാഹചരൃങ്ങളിൽ സഹായം എത്തിക്കുന്നതിനായി ദ ദ ചരക്ക് വിമാനങ്ങൾ പാലം വ്യോമ താവളത്തിൽ എപ്പോഴും സജ്ജമായി ഇരിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു

തുടക്കത്തിൽ കൊച്ചിയിൽ നടപ്പിലാക്കുന്ന ഈ സംവിധാനം തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ നഗരങ്ങളിലേയ്ക്ക് ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും